ഭാവി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനം ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ച സഹകരണത്തിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി

മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സ് എൻ സി

ഗവൺമെന്റ് രൂപീകരണത്തിനായി പൊതുമിനിമം പരിപാടിയുടെ കരട് തയ്യാറാക്കി

പുനരാരംഭിക്കും

ബ്രിക്സ് വാണിജ്യ സംഘടനയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ബ്രിക്സ് വാണിജ്യ സമിതിയുമായും ചർച്ച നടത്തി

വ്യാപാരം നൂതനാശയം സാങ്കേതിക വിദ്യ സംസ്ക്കാരം എന്നിവയിൽ ഫലമുളവാക്കുന്ന ചർച്ചകളാണ് നടന്നത്

നരേന്ദ്രമോദ്ദിം കാര്യക്ഷമവും ഫലം നൽകുന്നതുമായ ബ്രിക്സ് സംവിധാനം ഇത്ത്ന് വേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി

ബ്രിക്സ് രാജ്യങ്ങളിലെ വൃക്ട്സായികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും പ്രധാനമന്ത്രി ക്ഷണിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രദേശത്ത് സമാധാനം കൈവരിക്കുന്നതിൽ പൊലീസ് സേന നടത്തുന്ന ശ്രമങ്ങളെ ലഫ്റ്റനന്റ് ഗവർണർ ശ്ശാഘിച്ചു തെരഞ്ഞെടുപ്പ് വേളയിൽ സേനയ്ക്ക് കൂടുതൽ സേവനങ്ങൾ നൽകാനാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു

സി പി ശിവസേന കക്ഷികൾ അന്തിമരൂപം നൽകിയെന്ന് കോൺഗ്രസ്സ് നേതാവ് വിജയ് വദെറ്റിവർ മൂന്ന് രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് പൊതുമിനിമം പരിപാടിയുടെ അന്തിമ കരട് മൂന്ന് പാർട്ടികളുടെയും മേധാവികൾക്ക് അയക്കും ഇത് അംഗീകരിച്ച ശേഷമേ ഗവൺമെന്റ് രൂപീകരണവും അധികാരം പങ്കിടലും സംബന്ധിച്ച് ചർച്ച ഉണ്ടാകൂ

അതേസമയം ഭിന്നതകൾ പരിഹരിച്ച് ശിവസേനയും ബിജെപിയും ചേർന്ന് ഗവൺമെന്റുണ്ടാക്കണമെന്ന് എൻ

ജെ

കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിൽ സ്പ്പീക്കർ അയോഗ്യരാക്കിയ കോൺഗ്രസ് ജനതാദൾ സെക്യുലർ മുൻഎംഎൽഎമാരാണ് സ്ഥാനാർഥി പട്ടികയിൽ ഉള്ളത് രണ്ട് സീറ്റിലേയ്ക്കുളള് സ്മാനാർത്ഥികളെ ബി ജെ പി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല

എമാരെ അയോഗ്യരാക്കിയ നടപടി സുപ്രീംകോടതി കിഴിഞ്ഞ് ദിവസം ശരിവച്ചിരുന്നു

ജെ പിയ്ക്ക് ഭൂരിപക്ഷം നേടാനാകു

രണ്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കേസിനെ തുടർന്ന് നീട്ടിവച്ചിരിക്കുകയാണ്

ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സുരക്ഷാസേനയുടെ ആത്മവീര്യത്തെ ബാധിക്കും

റഫേൽ പോർവിമാനങ്ങളുടെ വില സംബന്ധിച്ച് വിവരം ഗവൺമെന്റ് സി

ജി യെ അറിയിച്ചിട്ടുണ്ടെന്നും സി

ജി യുടെ റിപ്പോർട്ട് പി

സി പരിശോധിച്ചതാണെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു

കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ കൌൺസിൽ ജനറൽ സെക്രട്ടറി എസ്

ആർ കുമാറിന്റേതാണ് പ്രതികരണം വിധി ദൂരവ്യാപക സ്വാധീനം ഉൾക്കൊള്ളുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു

മാങ്ങാട്ടുപറമ്പിലെ കണ്ണൂർ സർവ്വകുലാശാല സ്റ്റേഡിയത്തിലാണ് കായികോത്സവം നടക്കുക

ന്യൂഡൽഹിയിൽ പ്രഥമ കാർഷിക രാസവസ്തു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത് കാര്യപ്രാപ്തിയുള്ള കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച് അറിവുണ്ട്

കർഷകരെ ബോധവത്ക്കരിക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്ന് ശ്രീ

ആവശ്യത്തിനുള്ള ഉത്പാദനവും കാർഷിക രാസവസ്തുക്കളുടെ സന്തുലിതമായ ഉപയോഗവും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്

കൃഷിയിലൂടെ ആഗോള വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിനാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ പീണ്ണിത ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിച്ചു ദിദിന ദേശീയ സ്ക്മ്മേളനത്തിൽ സംസാരിക്കവെയാണ് അവർ ഇക്കാര്യം പറഞ്ഞത്

കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്നലെ ജില്ലാ ഭരണകൂടങ്ങളുമായും സംസ്ഥാനത്തെ എം പി എം എൽ എ മാർ എന്നിവരുമായും നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലുകൾ നടത്തി

ശബദ് കീർത്തൻ ബാനി ഉത്സവ് തർജ്ജിമയും പ്രക്ഷേപണം ചെയ്യും രാജധാനി എഫ്

വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ്മന്ത്രി പ്രകാശ് ജാവദേക്കർ പരിപാടിയിൽ പങ്കെടുക്കും

സിസായി മണ്ഡലത്തിൽ ഡോ ദിനേഷ് ഒറാവോൺ ആണ് സ്ഥാനാർത്ഥി

മുൻ ലോക ഒന്നാം നമ്പർ താരം കൂടിയായ ശ്രീകാന്ത് ഒളിമ്പിക് ചാമ്പ്യൻ ചൈനയുടെ ചെൻ ലോങ്ങിനെയാണ് നേരിടുക

പ്രപ്രണോയ് പാരുപ്പള്ളി കശ്യപ് പി വി സിന്ധു എന്നിവർക്ക് ഇന്നല്ലൌഷ്ഷ്ടത്തിന്റെ ദിനമായിരുന്നു